പാലാ ഉപതെരഞ്ഞെടുപ്പിൽ എൽ

എഫ് സ്ഥാനാർത്ഥി മാണി സി

നിന്ന് മോചനമായെന്ന് മാണി സ്റ്റി ്കാപ്പൻ വീഴ്ചകൾ തിരുത്തുമെന്ന് ജോസ് ക്കെ മാണി

തിരിച്ചടി ഇന്ത്യൻ സ്നേനയുടെ ആത്മവിശ്വാസത്തിന് തെളിവെന്ന് രാജീർക്ഷാമന്ത്രി രാജ്നാഥ് സിങ്ങ്

സെമിയിൽ കടന്നു പാലാ വിജയം പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ ചരിത്ര വിജയം നേടി

ഡി എഫ്

തെരഞ്ഞെടുപിൽ മാണി സി

എ സ്ഥാനാർത്ഥി എൻ

വോട്ടെണ്ണൽ തുടങ്ങി ഓരോ ഘട്ടത്തിലും വൃക്തമായ ലീഡ് നിലനിർത്തിയാണ് മാണി സി കാപ്പൻ പാലാ മണ്ഡലം പിടിച്ചെടുത്തത്

മാണി ജയിച്ചു വന്നിരുന്ന മണ്ഡലമാണ് യു ഡി

എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പന് പാലാ നിയമസഭാ മത്സരത്തിൽ വിജയം നേടിന്നുായത്

രാഷ്ട്രട്ടീയത്തിന് പുറമെ സിനിമാ നിർമാതാവ് സംവിധായകൻ അഭിനേതാവ് എന്നീ മേഖലകളിലും മാണി സി

പഠനകാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വോളിബോൾ ക്യാപ്റ്റനായിരുന്ന അദ്ദേഹം പിന്നീട് രാജ്യാന്തര വോളിബോൾ താരമായി പാലാ നഗരസഭ കൌൺസിലറായും പ്രവർത്തിച്ചിട്ടുണ്ട്

നിലവിൽ എൻ സി

ദേശീയ വർക്കിംഗ് കമ്മറ്റി അംഗമാണ്

ഡി എഫിന് നേടാനായത്

ഡി

എന്നാൽ യു ഡി എഫിന്റെ വോട്ട് വിഹിതത്തിൽ വൻ ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്

ഡി എഫിന് നഷ്ടപ്പെട്ടത്

ഡി

എ

കോട്ടയെന്ന് കരുതപ്പെട്ടിരുന്ന പാലാ നഗരസഭയിലും ഭരണങ്ങാനമുൾപ്പെടെ ഒമ്പത് പഞ്ചായത്തുകളിലും നേടിയ മേൽക്കൈ എൽ

എഫ് വിജയത്തിന് തിളക്കം കൂട്ടുന്നു

വോയ്സ് പാലായിൽ ഇടതുപക്ഷ മുന്ന്ണീയ്ക്ക് തിളക്കമാർന്ന വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി അറിയിച്ചു

രണ്ടില ചിഹ്നം കിട്ടാത്തത് തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു

വികസനം കാലാവസ്ഥാ വൃതിയാനം എന്നിവയ്ക്ക് പ്രധാന്മന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രത്യേക പരിഗണന നൽകാൻ സാധ്യതിയുണ്ടെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ അറിയിച്ചു അമൃതാനന്ദമയി ജന്മദിന സമ്മേളനം ഭീകരാക്രമണങ്ങൾക്ക് കാലതാമസമില്ലാതെ തിരിച്ചുടി നൽകുന്നത് ഇന്ത്യൻ സേനയുടെ ആത്മവിശ്വാസത്തിന്റെയും ഇച്ഛാശക്തിയുടെയും തെളിവാണെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിങ്ങ് കൊല്ലത്ത് പറഞ്ഞു

തീരദേശ സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ച് തീരസുരക്ഷ പ്രധാനമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു

ഫ്ളാറ്റ് നിർമാതാക്കളുടെ സ്വത്ത് കണ്ട് കെട്ടാനും കോടതി ഉത്തരവിട്ടു

ഫ്ളാറ്റ് ഉടമകൾക്ക് പൂർണ നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ പ്രത്യേക സമിതിയെ നിയമിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് കോടതിയെ അറിയിച്ചു

വിഷയത്തിൽ ജില്ല ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന ആവശ്യം അംഗീകരിച്ചും ഒക്ടോബർ ഒന്നിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയെ പരിഗണിച്ചുമാണ് ഹർത്താൽ താൽക്കാലികമായി മാറ്റിയതെന്ന് യു ഡി

തേവാരക്കെട്ട് സ രസ്വതിദേവി വേളിമല കുമാരസ്വാമിശുചീന്ദ്രം മുന്നൂറ്റിനങ്ക എന്നീ വിഗ്രഹങ്ങൾ ക്കാണ് സ്വീകരണം നൽകിയത് കേരള പോലീസ് ്യൂർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു

രാജു വന്യജീവി ആക്രമണം രൂക്ഷമായ് സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ തൂക്കുവേലി സ്ഥാപിക്കുന്നതട്ക്കമുള്ള പുതിയ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി കെ

വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിന് പുറമേ വനത്തിനുളളിൽ വന്യമൃഗങ്ങൾക്ക് സ്വൈര ജീവിതം ഉറപ്പു വരുത്താൻ സ്ഥലം വിട്ടുനൽകാൻ സന്നദ്ധരായവർക്ക് പ്രതിഫലം നൽകി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ഊർജ്ജിതമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു